എസ്

ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ തടയുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ് സമൂഹ മാധ്യമങ്ങളുടെ മേധാവികളുമായി തെരഞ്ഞെടുപ്പ് കമീഷൻ കൂടികാഴ്ച നടത്തും ഫേസ്ബുക്ക് വാട്സ് ആപ് ടിറ്റർ ഗൂഗിൾ ഷെയർചാറ്റ് ടിക് ടോക് തുടങ്ങിയവയുടെ മേധാവികളുമായി ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച വ്യാജ വാർത്തകൾ തടയാൻ സംവിധാനമൊരുക്കണമെന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമീഷൻ നിർദേശം നൽകിയിരുന്നു വിവിധ രാഷ്ട്രീയപാർട്ടികളുടെ പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി നൽകുന്നതിന് മുമ്പായി തെരഞ്ഞെടുപ്പ് കമീഷന്റെ രജിസ്ട്രേഷനും നിർബന്ധിതമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരെഞ്ഞെടുപ്പിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാ ക്കുന്നതിന് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കൾ ന്യൂഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകളിൽ സംസ്ഥാനത്ത് മത്സ രിക്കുന്നവരുടെ പട്ടിക ഇരുകക്ഷികളും ഇന്ന് പ്രഖ്യാപിച്ചേക്കും ബിജെ പി ദേശീയ അധ്യൻ അമിത്ഷായും പ്രധാനമന്ത്രി നർന്ദ്രമോദിയും പങ്കെ ടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ന്യൂഡൽഹിയിൽ തുട ങ്ങി

സംസ്ഥാന ഘടകം സമർപ്പിച്ച ചുരുക്കപ്പട്ടിക വിശദമായി പരിശോധിച്ചായിരിക്കും കേന്ദ്ര തെര ഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക കോൺഗ്രസിൽനിന്നും ബിജെപിയിലെത്തിയ ടോം വടക്കൻ മത്സ രിക്കു ന്ന കാര്യം കേന്ദ്ര നേ തൃ തൃ മാണ് പരിഗണിക്കേണ്ട തെന്നും ് സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ലെന്നും ബിജെപി സംസ്ഥാന പ്രസി ഡന്റ് അഡ

ഇന്നലെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥി കളെ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയെ ഹൈക്കമാന്റ് ഡൽഹിക്കു വിളിപ്പിച്ചു മധ്യകേരളത്തിലെ മൂന്ന് സീറ്റുക ളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നിർണ്ണായകമായ ചർച്ചയ്ക്കാണ് ഉമ്മൻചാണ്ടിയെ വിളിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ഹൈക്കമാന്റി നോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇന്നലെയാണ് ഡൽഹിയിലെ ചർച്ച കഴിഞ്ഞ് അദ്ദേഹം ആന്ധ്രയിലേക്ക് പോയത് സ്ഥാനാർത്ഥി നിർണയത്തിലും ആദ്യഘട്ട പ്രചാരണത്തിലും മുന്നി ലെത്തിയ ഇടത് മുന്നണി രണ്ടാംഘട്ട പ്രചാരണത്തിന് തുടക്കമിട്ടു കഴി ഞ്ഞു വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പരൃടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു പ്രമുഖ വൃക്തികളെ നേരിൽകണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വോട്ട് ഉറപ്പാക്കാനാണ് ഇടത് സ്ഥാനാർത്ഥികളുടെ നീക്കം എല്ലാ മണ്ഡലങ്ങളിലും കൺവെൻഷൻ പൂർത്തിയാക്കിയ എൽ ഡി എഫ് ബൂത്തുതല പ്രചാരണത്തിന് ഇന്ന് തുടക്കമിടും

മന്ത്രിമാരടക്കം പ്രമുഖർ സംഗമങ്ങളിൽ പങ്കെടുക്കും

കെഎസ്

ബസ്സുകളിലെ ഗവൺമെന്റ് പരസ്യങ്ങൾ ഉച്ചയ്ക്ക് രണ്ടിനുമുൻപായി നീക്കം ചെയ്യണമെന്ന് എം

തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റചട്ടം നിലവിൽ വന്ന തോടെ ഔദ്യോഗിക സംവിധാനത്തിലെ മുഴുവൻ പ്രചാരണപരമായ പര സൃങ്ങളും മാറ്റണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ് ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവും അതിനെതിരെ സ്വീകരിച്ച നടപടികളും ഓരോ ദിവസവും വൈകീട്ട് ജില്ലാ കലക്ടർമാർ മുഖ്യ തെര ഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകണമെന്ന നിർദ്ദേശം നിലവിൽവന്നു ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ ജോയിന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ കെ ജീവൻബാബുവിനെ നോഡൽ ഓഫീസറായി നിയമിച്ചു പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പൊതുസ്ഥലങ്ങളിലും പൊതുഗതാഗത സംവി ധാനങ്ങളിലും സ്ഥാപിച്ച പരസൃങ്ങൾ ഉടനടി നീക്കം ചെയ്യും മന്ത്രിമാർ രാഷ്ട്രീയകക്ഷി നേതാക്കൾ പാർട്ടികൾ എന്നിവരുമായി ബന്ധപ്പെട്ട പരാ മർശങ്ങൾ ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ നിന്ന് നീക്കംചെയ്യേണ്ടതാ ണ് അനധികൃത പ്രചാരണ സാമഗ്രികൾ നീക്കംചെയ്യാൻ മുഖ്യതെരഞ്ഞെ ടുപ്പ് ഓഫീസർ ട്രിക്കാറാം മീണ നേരത്തെതന്നെ നിർദ്ദേശം നൽകിയിട്ടു ണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരെ മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് സംവിധാനം എന്നിവ പരിചയപ്പെടുത്തും ബിജെപിയുടെ മേം ഭി ചൌക്കിദാർ മൂഹീം പ്രചാരണ പരിപാടിയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തുടക്കം കുറി ച്ചു രാജ്യത്തെ സേവിക്കുന്ന ഓരോരുത്തരും ചൌക്കീദാറാണെന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് പരിപാടി ആരംഭിച്ചത് അഴിമതി മാലിന്യം സാമൂഹൃതിന്മകൾ എന്നിവയ്ക്കെല്ലാം എതിരെ പ്രവർത്തിക്കുന്ന ഓരോ രുത്തരും രാജ്യത്തിന്റെ കാവൽക്കാരണെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു രാജ്യത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടാനാണ് തനിക്കിഷ്ട മെന്നും മോദി അറിയിച്ചു

ഐ യുമായി മുസ്ലീംലീഗ് നേതാക്കൾ നടത്തിയ ചർച്ച നാടിന് ആപൽക്കരമാണെന്ന് മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു നാടിന്റെ വിശാല താൽപര്യം കണക്കിലെടുത്ത് ഇത്തരം ചർച്ചകളിൽനിന്ന് മുസ്ലീം ലീഗ് പിന്മാറണ മെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ എൻ

എ ഒറ്റക്കെട്ടായി നേരിടുമെന്നും വികസനമുരടിപ്പിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വർഷങ്ങളായി കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിച്ച ടോം വടക്കൻ ബിജെപിയിലേക്ക് എത്താൻ കാരണം പാർട്ടി യുടെ പ്രവർത്തനം നല്ലതെന്നു തോന്നിയതുകൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അഭിപ്രായപ്പെട്ടു എന്നാൽ ബിജെപിയി ലേക്ക് വരുന്നവർക്കെല്ലാം സ്ഥാനം കിട്ടില്ല പ്രധാനമന്ത്രിവരെ കഴിവിലൂ ടെയാണ് പദവിയിൽ എത്തിയതെന്നും കോൺഗ്രസിനെപ്പോലെ പാർട്ടി കുടുംബസ്ത്തല്ലെന്നും കണ്ണന്താനം ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് പൊലീസ് ഓഫീ സർമാരുടെ ഉന്നതതല യോഗം ചേർന്നു ഉത്തരമേഖലയിലെ വിവിധ ജില്ലകളിലെ ക്രമസമാധാന് ചുമതല വിവിധ ഇടങ്ങളിലെ മാവോവാദി സാന്നിധ്യം പൊലീസുകാരുടെ ക്ഷേമകാരൃങ്ങൾ തുടങ്ങി യവ യോഗത്തിൽ ചർച്ചയായി ക്രമസമാധാന ചുമതല ഒഴികെ കാര്യ ങ്ങൾ തിരഞ്ഞെടുപ്പിനു ശ്രേഷം പരിഗണിക്കാൻ ഡിജിപി നിർദ്ദേശം നൽകി യുഡിഎഫ് കോഴിക്കോട് മണ്ഡലം പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും ബാലുശ്ശേരി കൊടുവള്ളി നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന് ചേരും പശ്ചിമബംഗാളിൽ സി

എം

ഇതിൽ നാല് പേർ സ്ത്രീകളാണ്

നേരത്തെ ബംഗാളിൽ കോൺഗ്രസുമായി സിപി ഐ എം ധാരണയിലെത്തിയിരുന്നു കോൺഗ്രസ്റ്റിന്റെ നാല് സിറ്റിംഗ് സീറ്റുകളിൽ ഇടതുമുന്നണി സി

വിവിധ മേഖലകളിലെ മികവിന് പ്രഖ്യാപിച്ച പത്മപുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു കേരള ത്തിൽനിന്ന് ഐ

ആർ ഒ യിലെ മുൻ ശാസ്ത്ര ജ്ഞൻ നമ്പിനാരായണനും പുരാവസ്തുഗവേഷകൻ കെ

മുഹമ്മദും പുര സ്കാരം ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ അഞ്ചുജില്ലകളിലെ കൂടിയ താപനില രണ്ടുമുതൽ മൂന്നുഡിഗ്രിവരെ വർദ്ധിക്കാമെന്ന് സംസ്ഥാന ദൂരന്തനിവാരണ അതോ റിട്ടി മുന്നറിയിപ്പ് നൽകി

സ്ത്രീപീഡനക്കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളങ്കലിനെതിരെ സാക്ഷി മൊഴി നൽകിയ തന്നെ മനോരോഗിയായി ചിത്രീകരിച്ച് പീഡിപ്പിക്കാൻ ശ്രമമെന്ന് സിസ്റ്റർ ലിസി വടക്കെയിൽ വെളിപ്പെടുത്തി തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും മഠം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടെന്നും ആവശ്യമായ ചികിത്സനിഷേധിച്ചെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു മഠത്തിനുള്ളിൽ തടങ്കൽ ജീവിതമാണ് താൻ നയിക്കുന്നതെന്നും ക്രിസ്തുവിന്റെ മണവാ ട്ടിയായി ജീവിതം തെരഞ്ഞെടുത്ത തന്നെ ആരുവിചാരിച്ചാലും അതിൽനിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നും അവർ വൃക്തമാക്കി

ശ്രീഭൂത ബലിയോടൊ പ്പമാണ് വിളക്കെഴുന്നള്ളിപ്പ് മഹാദീപാരാധ നയോടെ ചടങ്ങുകൾ സമാപിക്കും കാസർകോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഒരാളെകൂടി അന്വേ ഷണ സംഘം കസ്റ്റഡിയിലെടുത്തു

കൊല്ലപ്പെട്ട കൃപേഷിനേയും ശരത്ലാലിനെയും പിന്തുടർന്ന് പ്രതികൾക്ക് ഫോണിൽ വിവരം കൈമാറിയത് രഞ്ജിത്താ ണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്

തീ അണയ്ക്കാൻ അഗ്നിസുരക്ഷാ സേന ശ്രമം തുടരുകയാണ് മേഖലയിലെ ആവാസ വ്യവസ്ഥയെയും ജൈവസമ്പത്തിനെയും ചരിത്ര സ്മാരകങ്ങളെയും തീപിടുത്തം ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്

ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥത യിലുള്ള സാഗർ സാംപട എന്ന കപ്പലിലാണ് ഇന്നല്ല് രാത്രി തീപിടുത്ത മുണ്ടായത്

അപായസൂചന ലഭിച്ച ഉടൻ കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകൾ സ്ഥല ത്തെത്തി ശാസ്ത്രജ്ഞരെയും ജീവനക്കാരെയും സുരക്ഷിതസ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തമൊഴിവായി തീ അണച്ചശേഷം കപ്പൽ മംഗളൂരു തുറമുഖത്തെത്തിച്ചു തൃശ്ശൂർപൂരം വെടിക്കെട്ട് നിയന്ത്രണ ഉത്തരവിൽ ഇളവ് ആവശ്യപ്പെട്ട് തിരുവമ്പാടി ദേവസംബോർഡ് സുപ്രീംകോടതിയെ സമീപിച്ചു ഗുണ്ട് ഓലപ്പടക്കം അമിട്ട് എന്നിവയ്ക്കും ബേരിയം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പടക്കങ്ങൾക്കും അനുമതി വേണ്മെന്നാണ് ഹർജിയിലെ പ്രധാന ആവ കൂടാതെ സമയ നിയന്ത്രണത്തിൽ ഇളവ് വേണമെന്നും ശ്യാ ആവശ്യപ്പെട്ടിട്ടുണ്ട്

മിയാമിയിൽ ചേർന്ന ഫിഫ കൌൺസിൽ യോഗമാണ് തീരുമാനം പ്രഖ്യാപിച്ചത്